ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെ പ്രമുഖർ രാംജത്ത്മലാനിയുടെ നിര്യാണത്തിൽ അനുശോചിച്ചു

ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ

അനുകൂല സാഹചര്യമുണ്ടായാൽ യൂ

എഫ് സ്ഥാനാർത്ഥിയ്ക്കുവേണ്ടി ഒരുമിച്ച് പ്രചാരണത്തിനിറങ്ങുമെന്ന് പി

ജോസഫ് കേന്ദ്ര സഹമന്ത്രി വി

നിലവിൽ ആർ

ഡിയുടെ രാജ്യ സഭാംഗമാണ് വാജ്പേയി മന്ത്രിസഭയിൽ നിയമമന്ത്രി നഗരകാര്യമന്ത്രി തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു സുപ്രീംകോടതി ഏറ്റവും കൂടു തൽ പ്രതിഫലം വാങ്ങുന്ന അഭിഭാഷകരിൽ ഒരാളായ അദ്ദേഹം ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട് സംസ്കാരം വൈകീട്ട് ലോധി റോഡ് ശ്മശാനത്തിൽ നടത്തുമെന്ന് ബന്ധുക്കൾ അറി യിച്ചു

വിഭജനത്തെതുടർന്ന് മുംബൈയിലെത്തി

രാംജത്ത് മലാനിയുടെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖരും അനുശോചിച്ചു അസാമാനൃധിഷണാശാലിയായ അഭിഭാഷകനും കോടതിയിലും പാർലമെന്റിലും മഹത്തായ സംഭാവന നൽകിയ വ്യക്തിതവുമായിരുന്നു രാംജത്ത് മലാനി എന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു അതീവ ധൈര്യവും ഏത് സാഹചര്യത്തിലും സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചുനിൽക്കുന്ന സ്ഥഭാ വവും രാംജത്ത് മലാനിയുടെ പ്രത്യേകതയായിരുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു രാംജത്ത് മലാനിയുടെ നിര്യാണത്തിൽ അഗാധമായ ദുഖം അറിയി ക്കുന്നതായി ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു അറിയിച്ചു ഭാരത്തിലെ ഏറ്റവും സമർഥമായ മനസ്സിന്റെ ഉടമയായിരുന്നു രാംജത്ത് മലാനി എന്ന് അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു പ്രഗത്ഭനായ നിയമജ്ഞനെയും രാജ്യസ്നേ ഹിയെയും ബുദ്ധിജീവിയെയുമാണ് നഷ്ടമായതെന്നും നായിഡു കുറി ച്ചു ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാംജത്ത് മലാനിയുടെ വസതിയിലെത്തി അന്തിമോപചാരമർപ്പിച്ചു സൊറാഹ്ബുദ്ദീൻ ഷെയ്ക്ക് ഏറ്റുമുട്ടൽകേസിൽ അമിത്ഷായുടെ അഭിഭാഷകൻ കൂടിയായിരുന്നു രാംജത്ത് മലാനി

കേന്ദ്രമന്ത്രി രാംവിലാസ്പസ്വാനും ജത്ത്മലാനിയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി മുതിർന്ന പാർട്ടി നേതാക്കളും അഭിഭാഷകരുമായ കബിൽസിബൽ അഭിഷേക് സിംഗ്വി തുടങ്ങിയവരും രാംജത്ത് മലാനിയുടെ നിര്യാണത്തിൽ അനുശോചനമറി യിച്ചു ഏറ്റവും അടുത്ത സുഹൃത്തിനെയാണ് നഷ്ടമായതെന്ന് രാംജത്ത് മലാനിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് സി

എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ടിറ്ററിൽ കുറിച്ചു നിയമലോകത്തെ ഇതി ഹാസമായിരുന്നു അദ്ദേഹമെന്നും യെച്ചൂരി അനുസ്മരിച്ചു

പ്രളയരക്ഷാ പ്രവർത്തനം നട്ടത്തിയ മത്സ്യത്തൊഴി ലാളികളെ അനുമോദിക്കാൻ കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച ചടങ്ങിൽ ദുരിതാശ്വാസ പ്രഖ്യാപനം നിർവ്വഹിക്കുക്യായിരുന്നു മന്ത്രി കേന്ദ്ര മോട്ടോർവാഹന നിയമുഭേദഗതിയിൽ ഏർപ്പെടുത്തിയ ഉയർന്ന പിഴ വിപരീത ഫലമുണ്ടാക്കുമെന്ന് സി

എം

അശാസ്ത്രീ യ നടപടികളിലൂടെ കേന്ദ്രഗവൺമെന്റ് രാജ്യത്തിന്റെ ഫെഡറൽ സമ്പ്ര ദായം തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഉയർന്ന പിഴ ചുമത്തപ്പെടുന്നവർ അതിൽനിന്ന് രക്ഷപ്പെടാൻ കൈക്കൂലിനൽകാനാ യിരിക്കും ശ്രമിക്കുക ഇത് അഴിമതിയ്ക്ക് വഴിയൊരുക്കുമെന്ന് കോടി യേരി പറഞ്ഞു ഇതിനുപകരം ശിക്ഷകർശനമാക്കി പിഴശിക്ഷ കുറയ്ക്കു കയാണ് വേണ്ടതെന്നും സംസ്ഥാന സെക്രട്ടറി അഭിപ്രായ പ്പെട്ടു

ബഹിരാകാശ ദൌതൃങ്ങളെല്ലാം ബുദ്ധിമുട്ടേറിയ താണെന്നും വരുംകാല ബഹിരാകാശ പദ്ധതികൾ ഒരുമിച്ച് യാഥാർഥ്യമാക്കാമെന്ന് പ്രതീക്ഷിക്കുന്നതായും നാസ അറിയിച്ചു ചന്ദ്രനിൽ സോഫ്റ്റ് ലാന്റ് ചെയ്യാനുള്ള ശ്രമത്തിനിടെ നിരവധി തവണ നാസ പരാജയം ഏറ്റുവാങ്ങിട്ടുണ്ട്

എഫിലെ മാണി സി കാപ്പനും എൻ

യിലെ എൻ

എഫ്

കക്ഷിരഹിതർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിഹ്നം അനു വദിച്ചു പാലാ ഉപതെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം വിഭാഗങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു തർക്കങ്ങൾ പരിഹരിക്കുന്നതിനിടയിൽ ചില ആശയകുഴപ്പങ്ങൾ ഉണ്ടായെന്നും അവ പരിഹരിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുമെന്നും അദ്ദേഹം കോട്ടയത്ത് വൃക്തമാക്കി

എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനുവേണ്ടി ഒറ്റയ്ക്ക് പ്രവർത്തിക്കുമെന്നാണ് പി

ജോസഫ് പറഞ്ഞത് ജോസഫ് വിഭാഗവും മുഴുവൻ ഘടകക ക്ഷികളും യു

എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി ഒരുമിച്ചു നിൽക്കുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു പാലായിൽ അനുകൂല സാഹചര്യമുണ്ടായാൽ യു

സ്ഥാനാർത്ഥിയ്ക്കുവേണ്ടി ഒരുമിച്ച് പ്രചാരണത്തിനിറങ്ങുമെന്ന് കേരള കോൺഗ്രസ് എം വർക്കിംഗ് ചെയർമാൻ പി

തൽക്കാലം ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് സാഹചര്യമില്ലെന്ന് അദ്ദേഹം തൊടുപുഴയിൽ പറഞ്ഞു മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉമ്മൻ ചാണ്ടിയുമടക്കം നേതാക്കൾ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നും മോൻസ് ജോസഫിനെയും ജോയ് എബ്രഹാമിനെയും ചർച്ചകൾക്കായി പാർട്ടി ചുമ തലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പ്രചാരണം നടത്തണമോ എന്നത് പോകുന്നവരും പ്രതിച്ചായ മാസികയിൽ എഴുതിയവരും ശകു നംമുടക്കി എന്ന് ആക്ഷേപിക്കുന്നവരുമാണ് ചിന്തിക്കേണ്ടതെന്നും ജോസഫ് അഭിപ്രായപ്പെട്ടു ഇതുകൊണ്ടൊന്നും താൻ പ്രകോപിതനാവി ല്ലെന്നും അദ്ദേഹം പറഞ്ഞു ആത്മാഭിമാനമുണ്ടെങ്കിൽ കേരള കോൺഗ്രസ് എം നേതാവ് പി

ജോസഫ് യു

ജോസഫിനെ യു ഡി

അപമാനിച്ചുവെന്നും ഉമ്മൻചാ ണ്ടിയ്ക്കും ചെന്നിത്തലയ്ക്കും ഒന്നും ചെയ്യാനായില്ലെന്നും അദ്ദേഹം തിരു വനന്തപുരത്ത് പറഞ്ഞു കോൺഗ്രസിന്റെ തടവറയിൽ കഴിയുന്ന ജോസഫ് എൽ ഡി

ൽ വരുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയി ല്ലെന്നും കോടിയേരി പറഞ്ഞു കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന് ജൻമനാടായ തലശ്ശേരിയിൽ ഇന്ന് വൈകീട്ട് സ്വീകരണം നൽകും നാല് മണിക്ക് മലബാർ വികസനവേദിയുടെ ആഭിമുഖ്യത്തിൽ തലശ്ശേരി പാരീസ് റസിഡൻസിയിലും അഞ്ച് മണിക്ക് തലശ്ശേരി പൌരാവലിയുടെ നേതൃത്വത്തിൽ പുതിയ ബസ് സ്റ്റാന്റ് പരിസരത്തുമാണ് സ്വീകരണം അടുത്തവർഷത്തെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ വിഭജിക്കാനും അതിർത്തി നിർണ്ണയിക്കാനും പുതിയവ രൂപീകരിക്കാനും നടപടി വേഗത്തിലാക്കി

പുതുതായി രൂപീകരിക്കേണ്ട ഗ്രാമപഞ്ചായത്തു കളുടെ പട്ടികയും ഇതോടൊപ്പം സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് തെലങ്കാനയിൽ കെ

ചൌഹാൻ ഗവർണ്ണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ബിജെപി തമിഴ്നാട് ഘടകം പ്രസിഡന്റാ യിരുന്ന സൌന്ദരാ ജൻ ഡോ തെലങ്കാനയിലെ ആദ്യ വനിതാ ഗവർണ്ണറാണ്

സെറീന വില്യംസിനെ നേരിട്ടുള്ള രണ്ട് സെറ്റു കൾക്ക് അട്ടിമറിച്ചാണ് കാനഡ താരം ബിയാൻക കിരീടം നേടിയത്

ട കോഴിക്കോട് നടക്കുന്ന സൌത്ത് ഇന്ത്യൻ ഇന്റർസ്കൂൾ ബാസ്ക്കറ്റ് ബാൾ ചാംപ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ സിൽവർഹിൽസ് സ്കൂളും ഗിരിദീപം കോട്ടയവും ബിഷപ്പ് കോട്ടൺ ബംഗലുരുവും സെമിയിൽ പ്രവേശിച്ചു പെൺകുട്ടികളുടെ വിഭാഗത്തിൽ സ്പോർട്സ് ഡിവിഷൻ കണ്ണൂരും സെന്റ്മൈക്കിൾസ് കോഴിക്കോടും സിൽവർഹിൽസും ലിറ്റിൽഫ്ളവർ കൊരട്ടിയും സെമി യോഗൃത നേടി

കോഴിക്കോട് ജില്ലാതല ഓണാഘോഷപരിപാടികൾക്ക് നാളെ തുട ക്കമാകും മന്ത്രി എ

ശശീന്ദ്രൻ ഉദ്ഘാടനം ച്ചെയ്യും

വിമാനക്കമ്പനികളുടെ ആകാശക്കൊള്ളി അവ്വസാനിപ്പിക്ക ണമെന്ന് കേരള പ്രവാസി സംഘം വയനാട്ടിൽ ആവശ്യപ്പെട്ടു അവധികാലത്ത് യാത്രാകൂലിയിൽ ആറിരട്ടിയോളം വർദ്ധനവ് വരുത്തിയ വിമാന കമ്പനികൾക്ക് കേന്ദ്ര ഗവൺമെന്റ് കൂട്ടു നിൽക്കുകയാണെന്ന് വയനാട് ജില്ലാ കൺവൻഷൻ ആരോപിച്ചു കേരള പത്രപ്രവർത്തകയൂണിയൻ മുൻ പ്രസിഡന്റ് മലപ്പുറം പി മൂസയുടെ സ്മരണാർഥം സീനിയർ ജേർണലിസ്റ്റ് ഫോറം ഏർപ്പെടുത്തിയ പുരസ്കാരം കെ

എസ് നമ്പ്യാർക്ക് മറ്റന്നാൾ വൈകീട്ട് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ സമ്മാനിക്കും

എം തോമസ് ഐസക് നിർവ്വഹിക്കും

ആർച്ച് ബിഷപ്പ് ഡോ

തുടർന്ന് ആർച്ച് ബിഷപ്പിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ ദിവ്യബലിയർപ്പിക്കും